ത റഷ്യയുടെ സ്പുട്നിക് വി വാക്സിൻ അടുത്തയാഴ്ച ആദ്യത്തോടെ രാജ്യത്ത് ലഭ്യമാകും

അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം ആറായിരം രൂപയുടെ സാമ്പത്തിക ആനുകൂല്യം നൽകുന്ന പദ്ധതിയാണ് പിഎം കിസാൻ സമ്മാൻനിധി ഇന്ന് രണ്ടായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറുന്നത്

നേരത്തെ ആറാഴ്ചയ്ക്കും എട്ടാഴ്ചയ്ക്കും ഇടയിൽ രണ്ടാം ഡോസ് നൽകണമെന്നായിരുന്നു നിർദ്ദേശം കോ വാക്സിന് ഇത് ബാധകമല്ലെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദേദ രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം പതിനെട്ട് കോടിയോടടുക്കുന്നു

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് സ്ഥിരീകരണം

അവശ്യഘട്ടങ്ങളിലെ യാത്രയ്ക്ക് പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണ അഞ്ച് ലക്ഷത്തോട് അടുക്കുന്നു

ദേദ റഷ്യയുടെ കോവിഡിനെതിരായ സ്പുട്നിക് വി വാക്സിൻ അടുത്തയാഴ്ച ആദ്യത്തോടെ രാജ്യത്ത് ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരുലക്ഷത്തി അമ്പതിനായിരം ഡോസ് സ്പുട്നിക് വി വാക്സിൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പുതന്നെ രാജ്യത്ത് എത്തിച്ചിരുന്നു കോവിഡിനെതിരെ രാജ്യത്ത് ലഭ്യമാക്കുന്ന മൂന്നാമത്തെ പ്രതിരോധ വാക്സിനാണ് സ്പുട്നിക് വി ജുലൈയോടെ ഈ വാക്സിൻ ഹൈദരാബാദിലെ റെഡ്ഡി ലബോറട്ടറീസിൽ തദ്ദേശിയമായി ഉൽപാദിപ്പിക്കുമെന്ന് നിതി അയോഗ് അംഗം ഡോ വി കെ പോൾ അറിയിച്ചു

എസ് ആർ ടി സി ഡ്രൈവർമാരുടെ പരിശീലനം പൂർത്തിയായി പാലക്കാട് ജില്ലയിലെ ഡ്രൈവർമാർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് ഇന്ന് മുതൽ ഇവരെ ഉപയോഗിച്ച് സർവീസ് ആരംഭിക്കുമെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ടി

ഉബൈദ് അറിയിച്ചു രുര കോഴിക്കോട് ജില്ലയിൽ കോവിഡ് കേസുകൾ ഗണ്യമായി വർധിക്കുന്നത് പരിഗണിച്ച് പ്രധാന ആശുപത്രികളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇൻസിഡൻസ് കമാൻഡർമാരായി നിയോഗിച്ചു ആശുപത്രികളിൽ രോഗികൾക്ക് ആവശ്യമായ കിടക്കകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇവരുടെ ചുമതല

രുഭ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷ മാറ്റിവച്ചതായി യു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ലക്ഷദ്വീപിലുമാണ് റെഡ് അലർട്ട് നാളെ കണ്ണൂർ കാസർകോട് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലും റെഡ് അലർട്ട് ആയിരിക്കും

കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് തീവ്രമഴക്ക് സാധ്യത ന്യൂസ് ഡെസ്കിൽനിന്ന് രജ്ന കെ ആസാദ് ഓഡിയോ രുദ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒന്നോ രണ്ടോ ദിവസത്തിനകം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് ഇതിന്റെ പ്രഭാവത്താൽ സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ശക്തമായ മഴയും കാറ്റും കടൽക്ഷോഭവും ഉണ്ടായേക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് തെക്ക്കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും ഇന്ത്യൻ സമുദ്രഭാഗങ്ങളിലും ലക്ഷദ്വീപ് കന്യാകുമാരി മേഖലയിലും കടൽ പ്രക്ഷുബ്ധമായിരിക്കും

തിങ്കളാഴ്ചവരെ സംസ്ഥാനത്തിന്റെ തീരമേഖലയിലും മിക്ക ജില്ലകളിലും മഴയും കാറ്റും ഉണ്ടായേക്കും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങളിൽ മീൻപിടിത്തം ഇന്നലെ മുതൽ നിരോധിച്ചിരുന്നു മീൻപിടിത്തത്തിന് പോയവർ കഴിവതും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം നിലവിലുണ്ടായിരിക്കും അപകട മേഖലയിൽനിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറിതാമസിക്കണമെന്നും മലയോര മേഖലകളിലേക്ക് രാത്രിയാത്ര ഒഴിവാക്കണമെന്നും ദുരന്തനിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടിവന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്

ഒൻപത് ജില്ലകളിൽ ഇവരെ വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ട് രുഭ കോഴിക്കോട് ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൺട്രോൾറൂം തുറന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് രുര കോഴിക്കോട് തോപ്പയിൽ ബീച്ചിൽ കടൽക്ഷോഭത്തെത്തുടർന്ന് ഇരുപത്തഞ്ചോളം വീടുകളിൽ വെള്ളം കയറി ഇവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു

മുഴുപ്പിലങ്ങാട് എടക്കാട് ഭാഗങ്ങളിൽ കടലേറ്റത്തിൽ നിരവധി മരങ്ങൾ വീണു ദേഴ മഴക്കെടുതി നേരിടുന്നതിന് മുന്നൊരുക്കം ചർച്ചചെയ്യാൻ കൊല്ലത്ത് ഉച്ചക്ക് ഗൂഗിൾയോഗം ചേരും ദുരന്തനിവാരണ അതോറിറ്റി അംഗങ്ങളും വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുക്കും

ഒറ്റമശ്ശേരിഅർത്തുങ്കൽചേന്നവേലിപുന്നപ്രആറാട്ടുപുഴ എന്നിവടങ്ങളിൽ കടൽ കരയടുത്തു തീരത്തുളള വീടുകളിൽ കടൽവെള്ളം ഇരച്ച് കയറുന്നതിനാൽ തീരവാസികൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി തുടങ്ങി

രംഭ വരും ദിവസങ്ങളിൽ തീവ്രമഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ നാല് ഷട്ടറുകൾ തുറന്നു

തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്

ദേദ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ച സൌമ്യ സന്തോഷിന്റെ മൃതദേഹം ശനിയാഴ്ച നാട്ടിലെത്തിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇന്ന് രാത്രി ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽനിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിക്കുന്ന മൃതദേഹം തുടർന്ന് നാട്ടിലെത്തിക്കാനാണ് തീരുമാനം എന്നാൽ മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇത് വൈകാനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു ദ്ദേ കേന്ദ്ര ഗവൺമെന്റ് വിൽപ്പനയ്ക്ക് വെച്ച കാസർകോട്ടെ പൊതുമേഖലാ സ്ഥാപനം ബെൽ ഇ

രുഭ റബ്ബറിന്റെ റെയിൻ ഗാർഡുകളും മറ്റ് ഉപകരണങ്ങളും വിൽക്കുന്ന കടകൾ ലോക്ഡൌൺ സമയത്ത് തുറക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം കൃഷിവകുപ്പ് അംഗീകരിച്ചു

കേരള കോൺഗ്രസ് എം ഈ ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു